ഊർജ്ജസ്വലമായ ജനാധിപത്യം ബിസിനസ് സൌഹൃദ കാലാവസ്ഥ വൻ വിപണി ഇന്ത്യയെ ആഗോള നിക്ഷേപക ലക്ഷ്യസ്ഥാനമാക്കാൻ ഒരവസരവും പാഴാക്കാത്ത ഗവൺമെന്റ് എന്നിവയാണ് ഈ അവസരങ്ങളൊരുക്കിയതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ബ്ലൂംബർഗ് ന്യൂ എക്കണോമിക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി കോവിഡാനന്തര ലോകത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജനങ്ങളെ എവിടെ താമസിച്ചും ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിന് സാങ്കേതിക വിദ്യയുടെയും സേവന മേഖലയുടെയും മാർഗ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് ലഘൂകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ശുദ്ധമായ തടാകങ്ങളും നദികളും വായുവും ലഭിക്കുന്ന സ്ഥായിയായ നഗരങ്ങൾ നിർമ്മിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കുമെന്ന് ഇരു നേതാക്കളും പറഞ്ഞു കോവിഡ് മഹാമാരി കാലാവസ്ഥാ വ്യതിയാനം ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണം എന്നിവയും ചർച്ചാ വിഷയമായി

ഊർജ്ജസ്വലരായ ഇന്ത്യാ അമേരിക്കൻ സമൂഹത്തിന് അവരുടെ വിജയം അഭിമാനവും പ്രചോദനവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മറ്റ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് ഇന്നലെ രോഗം ബാധിച്ചവരുടെ എണ്ണം ദേദ കോവിഡ് പ്രതിരോധത്തിൽ ജനങ്ങളുടെ ഉദാസീനതയാണ് രോഗവ്യാപനത്തിന് വഴിയൊരുക്കുന്നതെന്ന് സംവിധായകനും തിരക്കഥാകൃത്തുമായ സിദ്ദിഖ് പറഞ്ഞു

തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം

കോഴിക്കോട് കോർപ്പറേഷനിലെ മുസ്സിംലീഗ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയും പുറത്തിറക്കി ദേദ കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന്റ രണ്ടാംഘട്ട സ്ഥാനാർഥി പട്ടിക പുറത്തിറക്കി ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പി മൂന്ന് സ്ഥാനാർഥികളെ കൂടി പ്രഖ്യാപിച്ചു ദര തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമെന്ന് ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി

ജെ പി കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഡിജിറ്റൽ കാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

തിരുവനന്തപുരം കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്

ദര ശക്തമായ വേലിയേറ്റം മൂലം കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു

നെൽകൃഷിയുടെ വിളവെടുപ്പിനെയും ബാധിച്ചിട്ടുണ്ട്

ദര റേഷൻ കാർഡുമായി ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് ജനുവരി മുതൽ ഭക്ഷ്യധാന്യം ലഭിക്കില്ലെന്ന് കൊല്ലം ജില്ലാ സപ്പൈ ഓഫീസർ അറിയിച്ചു താലൂക്ക് സപ്പ്പൈ ഓഫീസ് അക്ഷയകേന്ദ്രം റേഷൻ കട എന്നിവിടങ്ങളിൽ ആധാർ നമ്പർ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു ദര ഹജ്ജ് വിമാനങ്ങളുടെ ടെൻഡർ ഉറപ്പിക്കുന്നതിന് മുമ്പ് കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് അനുമതി ലഭ്യമാക്കാനും എംബാർക്കേഷൻ പോയിന്റായി നിലനിർത്താനും ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും പ്രവാസികളും ഒരുമിച്ച് പരിശ്രമിക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി

സംസ്ഥാനത്ത് ഹജ്ജ് തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മലപ്പുറം കോഴിക്കോട് ജില്ലക്കാരായതിനാൽ ഇത് അനിവാര്യമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ദേദ രാജ്യദ്രോഹ കേസിലെ പ്രതികളുമായി ബന്ധമുള്ള വ്യക്തിയെ കിഫ്ബി ഓഡിറ്റിംഗിൽ ഉൾപ്പെടുത്തിയത് ക്രമവിരുദ്ധ നടപടിയാണെന്നും എൻഫോഴ്സ്മെന്റ് അന്വേഷണം ഭയന്നാണ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് കള്ളം പറയുന്നതെന്നും കെ

സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു കിഫ്ബി ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു ദര തൃശൂർ കേരളവർമ കോളജ് പ്രിൻസിപ്പൽ എ പി ജയദേവൻ രാജിവെച്ചു

കിഫ്ബിയുടെ കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചുമതല ബിന്ദുവിനാണെന്ന് കോളജ് മാനേജ്മെന്റ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ദേദ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ പുതുതായി അനുവദിച്ച പുതുതലമുറ കോഴ്സുകളിൽ ഈ വർഷം തന്നെ ക്സാസ്സുകൾ തുടങ്ങുന്നതിന് കണ്ണൂർ സർവ്വകലാശാല സിണ്ടിക്കേറ്റ് യോഗം തീരുമാനിച്ചു സ്കീം സിലബസ് റഗുലേഷൻ എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ സിലബസ് മോണിറ്ററിങ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ദ്ദേ കേരള വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് ഇന്ന് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും